കണ്ടുകെട്ടിയ മണൽ ജില്ലാ കലക്ടർമാർ മതിപ്പുവില നിശ്ചയിച്ച് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ലേലം വഴി വിൽക്കാനും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട് കാസർക്കോട്ട് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ ആരംഭിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു ഇതിനായി അഞ്ച് തസ്തികകൾ അനുവദിക്കും ദേഴ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ വൈറസ് വ്യാപിക്കുന്ന ചൈനയിൽ നിന്നും സംസ്ഥാനത്ത് എത്തിയവർ ജാഗ്രത തുടരണമെന്ന് മന്ത്രി കെ

പനി ചുമ ശ്വാസതടസ്സം എന്നീ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ജില്ലകളിൽ സജ്ജമായിരിക്കുന്ന പ്രത്യേക ചികിത്സാ സംവിധാനവുമായി ബന്ധപ്പെടണം

ഇതിൽ രണ്ട് പേർ ആശുപത്രികളിലും മറ്റുള്ളവർ വീടുകളിലുമാണ്

ചൈനയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളായ മൂന്നു പേരും കച്ചവട ആവശ്യത്തിനായി ചൈനയിൽ സന്ദർശനം നടത്തിയ ആളുകളുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ദേദ കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ചൈനയിലേക്ക് യാത്ര ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിർദ്ദേശം നൽകി

സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കൊറോണ വൈറസ് പ്രതിരോധ തയ്യാറെടുപ്പുകൾ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു രാജ്യത്ത് ഇതുവരെ ആർക്കും കൊറോണ വൈറസ് ബാധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു രദേശ ഹ്യൂബെ പ്രവിശ്യയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ രണ്ടു വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്ന് ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെട്ടു അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിന് ഇന്ത്യൻ എംബസി ബീജിംഗുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്ന് വിദേശ കാര്യമന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചു

സ്ഥിതി ചർച്ച ചെയ്യാൻ ലോകാരോഗ്യ സംഘടന ഇന്ന് അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ട് ദേശ പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും

ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യനായിഡുവും വൈകിട്ട് സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമലാ സീതാരാമൻ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് മറ്റന്നാൾ ലോക്സഭയിൽ അവതരിപ്പിക്കും ദേദ യുവാക്കളുടെ കഴിവ് സംരംഭകത്വ രംഗത്ത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൊഴിലന്വേഷകർക്ക് പകരം യുവാക്കൾ തൊഴിൽ ദാതാക്കളാകുന്നത് നവകേരള സൃഷ്ടിക്ക് കരുത്തു പകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ആരോഗ്യകരമായ സംരംഭകത്വ സംസ്കാരം വളർത്തിയെടു ക്കുന്ന ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്നും നാട്ടിൽ വ്യവസായങ്ങൾ വളരാൻ എല്ലാ സാഹചര്യവും ഇപ്പോഴുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സത്യത്തിനും അഹിംസയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാത്മാവിന്റെ ഓർമ്മയിൽ രാജ്യത്ത് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

രാവിലെ തിരുവനന്തപുരം കെ

ആസ്ഥാനത്ത് പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടത്തുമെന്ന് പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു

പിയുടെ നേതൃത്വത്തിൽ കല്പറ്റയിൽ ഇന്ന് ഭരണഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിക്കും എസ് കെ എം ജെ ഹൈസ്കൂൾ പരിസരത്തുനിന്ന് ആരംഭിക്കുന്ന റാലിയിൽ കോൺഗ്രസ് സംസ്ഥാന നേതാക്കളും സാംസ്കാരിക നേതാക്കളും മറ്റും പങ്കെടുക്കും കല്പറ്റയിൽ നടക്കുന്ന പൊതുസമ്മേളനം രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്യും രദേശ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായി മഹാത്മജിയുടെ രക്തസാക്ഷിത്വദിനമായ ഇന്ന് യു

സംസ്ഥാനത്ത് ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കും

തിരുവനന്തപുരത്ത് എ

ആന്റണിയും കൊല്ലത്ത് വി

സുധീരനും മലപ്പുറത്ത് ഹൈദരലി ശിഹാബ് തങ്ങളും കോഴിക്കോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻ ചാണ്ടി എന്നിവരും കണ്ണൂരിൽ രമേശ് ചെന്നിത്തലയും നേതൃത്വം നൽകും ദ്ദേ ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സിയെ തോൽപിച്ച് എഫ് സി ഗോവ പട്ടികയിൽ ഒന്നാമതെത്തി

ദേദ കൊല്ലത്തു ദേശീയ സീനിയർ വനിതാ ഹോക്കി എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് കേരളം ഒഡീഷയുമായി ഏറ്റുമുട്ടും

രാവിലെ എട്ടിന് നടക്കുന്ന മത്സരത്തിൽ മധ്യപ്രദേശ് ഭോപ്പാലിനെ നേരിടും ദേദ കേന്ദ്ര കായിക യുവജന കാര്യ മന്ത്രാലയത്തിന്റെ സഹകരണ ത്തോടെ ഷൂട്ടിംഗ് ബാൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും കേരള ഷൂട്ടിംഗ് ബാൾ അസോസിയേഷനും സംഘടിപ്പിക്കുന്ന ഏക്ഭാരത് ശ്രേഷ്ഠ് ഭാരത് ദേശീയ സോണൽ ഷൂട്ടിംഗ് ബാൾ ചാംപ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട് വി കെ കൃഷ്ണമേനോൻ സ്റ്റേഡിയത്തിൽ തുടങ്ങും മഹാരാഷ്ട്ര ഒഡീഷ മധ്യപ്രദേശ് മണിപ്പൂർ നാഗാലാൻഡ് പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പുരുഷ വനിതാ താരങ്ങൾ പങ്കെടുക്കും ദരദ ജനാധിപത്യപ്രക്രിയ സ്വച്ഛമായി വളരാൻ മാധ്യമ സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് നിയമസഭാ സ്പീക്കർ പി

ഇന്നത്തെകാലത്ത് പൊതുപ്രവർത്തകരേക്കാൾ ജനങ്ങൾ വിശ്വസിക്കുന്നത് മാധ്യമങ്ങളെയാണെന്നും സ്പീക്കർ പറഞ്ഞു ദേദ രാജ്യത്തെ ആരോഗ്യ പരിചരണ സേവന ദാതാക്കൾക്കായി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര റിവേഴ്സ് ബയർ സെല്ലർ മീറ്റ് ഇന്ത്യ ഹീൽസിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും

മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഡെന്റൽ ക്ലിനിക്കുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ യോഗ നാച്ചുറോപ്പതി ആശുപത്രികൾ ഉൾപ്പെടെ മീറ്റിന്റെ ഭാഗമാകും രുദ കുടുംബശ്രീക്ക് കീഴിലെ മൂവായിരം കർഷക സംഘങ്ങൾക്ക് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്നതിനാവശ്യമായ വായ്പ ലഭ്യമാക്കുന്നതിന് നബാർഡും ബാങ്ക് ഓഫ് ഇന്ത്യയും കുടുംബശ്രീയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു ഇതനുസരിച്ച് കൃഷിയിടങ്ങളുടെ വലിപ്പക്കുറവുമൂലം ലാഭകരമായി കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർക്ക് കൂട്ടുകൃഷി നടത്താൻ ഈടില്ലാതെ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കും നിലവിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷക സംഘങ്ങൾക്കും പാട്ടക്കരാർ സമർപ്പിക്കാതെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പ നൽകും ദർദ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ പ്രത്യേക കോടതിയിൽ ഇന്ന് വിചാരണ തുടങ്ങും

അതേസമയം കുറ്റം ചുമത്തിയതിനെതിരെ നടൻ ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും കേസിലെ പ്രതികൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനെതിരെ ദിലീപ് നൽകിയ കേസും ദിലീപ് പ്രതിയായ കേസും വ്യത്യസ്തമായി പരിഗണിക്കണമെന്നാണ് അഭിഭാഷകർ ഇന്നലെ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോയും ആരോഗ്യവകുപ്പും വനിതാ ശിശു വികസന വകുപ്പും വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആരോഗ്യ ശിശു മത്സരം നടക്കും ഒരു കുതിരാൻ മേഖലയിൽ പവ്വർഗ്രിഡ് കോർപ്പറേഷന്റെ ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നതിന് നടത്തിയ ട്രയൽ റൺ അവസാനിച്ചു തൃശൂർ പാലക്കാട് ദേശീയ പാതയിലെ കുതിരാൻ ഭാഗത്ത് വാഹന കുരുക്കില്ലാത്ത വിധം ഗതാഗത നിയന്ത്രണമേർപ്പെടുത്തിയായിരുന്നു ട്രയൽ റൺ

ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടിൽ കത്തിയ പടക്കം ആളുകൾക്കിടയിലേക്ക് വീഴുകയായിരുന്നു രുര മറ്റന്നാൾ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ റെയിൽവെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയലിനും വി മുരളീധരനും റെയിൽവെ ബോർഡ് ചെയർമാൻ വിനോദ്കുമാർ യാദവിനും നിവേദനം നൽകി കണ്ണൂർ യശ്വന്ത് പൂർ ഇന്റർസിറ്റി തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി തുടങ്ങിയ ട്രെയിനുകൾ ദിനംപ്രതിയാക്കണമെന്നും കണ്ണൂരിലും കൊല്ലത്തും പിറ്റ്ലൈൻ സ്ഥാപിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ദേദ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ആരോഗ്യ വകുപ്പ് തൃശ്ശൂരിൽ നിർദ്ദേശം നൽകി വിവിധയിടങ്ങളിൽ പകർച്ചവ്യാധികൾ ജീവന് ഭീഷണിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് കലക്ട്രേറ്റിൽ നടത്തിയ യോഗത്തിൽ നിർദ്ദേശം നൽകിയത്

കുഷ്ഠരോഗ നിർമ്മാർജന ദിനമായ ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിലെ മേലെ പൊന്നങ്കയം ട്രൈബൽ കോളനിയിൽ സ്കിൻ സ്ക്രിനിംഗ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടക്കും ദേദ പെരിയാറിൽ നിന്നും എസ്റ്റേറ്റുകൾ വ്യാപകമായി ജലമൂറ്റുന്നത് തടയാൻ ഇടുക്കി ജില്ലാ കലക്ടർക്ക് ജലസേചന വകുപ്പ് കത്ത് നൽകി ഇടുക്കി ഉടുമ്പൻചോല തഹസിൽദാർമാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ നടപടിയാവാത്ത സാഹചര്യത്തിലാണ് കലക്ടർക്ക് കത്ത് നൽകിയത്